പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടോക്കിയിൽ എത്തി

ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി ഫൈനൽ ഇന്ന്

വെസ്റ്റിന്റീസിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി

നാളെ നടക്കുന്ന പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും

നരേന്ദ്രമോദി യമാനഷിയിൽ റോബോട്ടിക്സ് ആന്റ് ഓട്ടോമേഷൻ എന്ന സ്ഥാപനം സന്ദർശിക്കും

ഷിൻസൊ ആബേ ഒരുക്കുന്ന ഉച്ചഭക്ഷണ വിരുന്നിൽ ശ്രീ

ജപ്പാൻ പ്രധാനമുന്നീയുടെ വസതിയിൽ ഒരു ക്കുന്ന അത്താഴ വിരുന്നിനുശേഷം ഇരുന്നേതാക്കളും തമ്മിൽ അനൌപചാ രിക ചർച്ചകൾ നടത്തും രാത്രിയോടെ ഇരുനേതാക്കളും ടോക്കിയോവി ലേക്ക് തിരിക്കും

ജപ്പാന്റിലെ വ്യവസായ പ്രമുഖർക്ക് മുന്നിൽ ഇന്ത്യയിലെ ആകർഷകമായ് നിക്ഷേപ സാധ്യതകൾ പ്രധാനമന്ത്രി വിവരിക്കും

നാളെ ജപ്പാനിലെ ഇന്ത്യൻ വംശജർ ഒരുക്കുന്ന സ്വീകരണ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

പടിഞ്ഞാറൻ ഏഷ്യയിലെ രണ്ട് സുപ്രധാന രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

സന്ദർശനത്തിന്റെ രണ്ടാം പാതദത്തിൽ കുവൈറ്റിലെത്തുന്ന ശ്രീമതി സുഷമ സ്വരാജ് കുവൈറ്റിലെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഗൾഫ് രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തമാക്കുക യാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശ കാര്യമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

ആളപായമോ പരിക്കുകളോ ഉള്ളതായി റിപ്പോർട്ടില്ല

അതേസമയം ഇന്നലെ രാത്രി ബുദ്ഗാം ജില്ലയിൽ പോലീസ് ഉദ്യോഗസ്ഥനു നേരെ ഭീകരർ വെടിയുതിർത്തു പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശി പ്പിച്ചിരിക്കുകയാണ്

ഹൈദ്രാബാദിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടു ലക്ഷംകോടി രൂപ ചിലവുവരുന്ന ആറ് നദികളെ തമ്മിൽ സംയ്യോജിപ്പിക്കുന്ന പദ്ധതി കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു ആന്ധ്രപ്രദേശിലെ പൊലാവരം ജൽസ്റ്റേച്ന പദ്ധതിക്കായി ഇതുവരെ ഏഴായിരം കോടി സഹായം നിൽകീ തെലങ്കാനയിൽ നടപ്പാക്കുന്ന എൺപതിനായിരം കോടിയൂട്ട് കലേശ്വരം ജലസേചന പദ്ധതിക്കും കേന്ദ്രം സഹായം നൽകൂന്നു്ണ്ട്

ആറരലക്ഷം ഗ്രാമങ്ങളെ തമ്മിൽ റോഡുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞു

ജെ

കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഹർഷവർദ്ധൻ എന്നിവർ ട്വിറ്ററിലൂടെയും അനുശോചനം അറിയിച്ചു

നിരവധിപേർക്ക് പരിക്കേറ്റു

റോബർട്ട് പോലീസ് കസ്റ്റഡിയിലാണ് സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഗാധ ദുഖം രേഖപ്പെടുത്തി

ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രെസ്സ് കമ്മിറ്റി അധ്യക്ഷൻ ഭൂപേഷ് ബാഖേൽ പട്ടാൻ മണ്ഢല്പത്തിൽ മത്സരിക്കും കോൺഗ്രസ്സ് ലെജി സ്തേറ്റർ പാർട്ടി നേതാവ് ടീ എസ് സിംങ് ദിയോ അംബികാപൂറിൽ നിന്നും മുൻ കേന്ദ്രമന്ത്രി ചരൺദാസ് മഹന്ദ് ശക്തി മണ്ഡലത്തിലും മത്സരിക്കും

ജെ പി പാർട്ടി ഫണ്ടിലേക്ക് നൽകിയെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രി പ്രദീപ്സിൻഹ് ജഡേജ പറഞ്ഞു ആരോപണത്തെതുടർന്ന് പാർട്ടി കണക്കുകൾ പരിശോധിച്ചെന്നും അസ്താന ഒരു രൂപപോലൂം പാർട്ടിഫണ്ടിലേക്ക് നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്ത്യക്കുവേണ്ടി ഗുർജൻ സിംഗ് ചിങ്കലേസന കൻ ഗൂജാം ദിൽപ്രീത് സിംഗ് എന്നിവരാണ് ഗോൾ നേടിയത് മലേഷ്യയെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലൂടെ തോൽപ്പിച്ചാണ് പാക്കിസ്ഥാൻ ഫൈനലിൽ കടന്നത്

ഗോഖയും ദാഹേജും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഫെറി സർവ്വീസ് റോ പാക്സ് മാതൃകയിലുള്ള രാജ്യത്തെ ആദ്യത്തെ സർവ്വീസാണ് ഇത് ഭാവ് നഗർ ജില്ലയിലെ ഗോഖേയും ബെറൂച്ച് ജില്ലയിലെ ദാഹേജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദൂരം കുറഞ്ഞതും ചിലവ് കുറഞ്ഞതുമായ ജലപാതയാണിത് കാലവർഷത്തെ തുടർന്ന് നിർത്തിവച്ച ഫെറി സർവ്വീസുകൾ പുനരാംഭിക്കുകയും ചെയ്തു

വടക്കു കിഴക്കൻ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ആഘോഷത്തിൽ ആസ്സാം അരുണാചൽപ്രദേശ് മേഘാലയ മണിപ്പൂർ മിസ്സോറാം നാഗാലാന്റ് ത്രിപുര സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്

സംസ്ഥാന മന്ത്രിസഭ കേസിൽ ജയിലിൽ കൃഷ്ടിയുന്ന് ഏഴുപേരുടെ മോചനത്തിനായി ശുപാർശ ഉചയ്ത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ശുപാർശയും വിഷയത്തിൽ പ്രമുഖരുടെ നിലപാടുകളെയും തുടർന്നാണെന്ന് മുഖ്യമിന്ത് എടപ്പാടി പളനിസ്വാമി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഇക്കാലയളവിലുള്ള പാർലമെന്റിന്റെ എല്ലാ സമ്മേളനങ്ങളും നിർത്തിവച്ചതായി ഉത്തരവിൽ പറയുന്നു

പ്രസിഡന്റിന്റെ യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രീഡം അലയൻസ് ഗവൺമെന്റിനുള്ള പിന്തുണ പിൻവലിച്ചതോടെയാണ് റെനിൽ വിക്രമസിംഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത് തന്നെ പുറത്താക്കിയ നടപടിയെ വിക്രമസിംഗെ വെല്ലുവിളിച്ചു പാർലമെന്റിൽ ഭൂരിപക്ഷം തനിക്കൊപ്പമാണെന്നും ഉടനടി പാർലമെന്റ് യോഗം വിളിച്ചു കൂട്ടാനും അദ്ദേഹം ആവശ്യപ്പെട്ടു